പാക്കിസ്ഥാൻ പിടിയിൽ നിന്നും മോചിതനായു വ്യോമസേന വിംഗ് കമാന്റർ അഭിനന്ദൻ വർദ്ധമാണി ഇന്ന് കൂടുതൽ ആരോഗൃപരിശോധനക്ക് വിധേയനാക്കും കാർഷിക വായ്പയിലെ ജപ്തിനടപടികൾ നിർത്തിവെ യ്ക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദേശം നൽകിയ തായി മന്ത്രി കടകംപളളി സുരേന്ദ്രൻ നാളത്തെ പ്രത്യേക മന്ത്രിസ്റ്റഭായോഗം കർഷക ആത്മഹത്യാ വിഷയം ചർച്ചചെയ്യും ഇന്ന് മഹാശിവ്രാത്രി ശിവക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങ ളിലും വൻതിരക്ക് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധൃ തയെന്ന് കേന്ദ്രകാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ ഗുജ റാത്ത് സന്ദർശനം ഇന്ന് അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധ തിയുടെ ഒന്നാംഘട്ടം ഉദ്ഘാടനം ചെയ്യുന്ന മോദി രണ്ടാംഘ ട്ട ത്തിന് തറ ക്ക ല്ലി ടു ം

സംസ്ഥാനത്ത് നിർമാണം പൂർത്തിയാക്കിയ ഏതാനും ആശുപത്രികളും പ്രധാ നമന്ത്രി നാടിന് സമർപ്പിക്കും വ്യോമസേന വിംഗ് കമാന്റർ അഭിനന്ദൻ വർദ്ധമാനെ കൂടു തൽ ആരോഗ്യപരിശോധനക്ക് ഇന്ന് വിധേയനാക്കും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ നട്ടെല്ലിനും വാരിയെല്ലു കൾക്കും പരിക്കേറ്റതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കൂടു തൽ പരിശോധനക്ക് വിധേയനാക്കുന്നത് പരിക്കുകൾ ഭേദമായി എത്രയും പെട്ടെന്ന് അഭിനന്ദൻ സാധാ രണജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന് വ്യോമസേനാ അധി കൃതർ ഇന്നലെ വൃക്തമാക്കിയിരുന്നു

അഹമ്മദാബാദിൽ ബിജെപി തെരഞ്ഞെ ടുപ്പ് പ്രചരണറാലിയിൽ സംസാരിക്കൂകയായിരുന്നു അദ്ദേഹം ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുന്ന നേതൃത്വമാണ് രാജ്യം ഭരിക്കുന്നതെന്നും അമിത്ഷാ പ്റഞ്ഞു് അതേസമയം ഏതു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അമി ത്ഷായുടെ പ്രസ്താവനിയെന്ന് വൃക്തമാക്കാൻ കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരവും കപിൽ സിബലും ന്യൂഡൽഹി യിൽ ആവശ്യപ്പെട്ടു വ്യോമസേനാ എയർമാർഷൽ പോലും മരണസംഖ്യ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ എവി ടെനിന്നാണ് അമിത്ഷാക്ക് ഈ വിവരം ലഭിച്ചതെന്ന് പറയണ മെന്നും അവർ ആവശ്യപ്പെട്ടു മൊബൈൽ സിം കാർഡുകൾ ബാങ്ക് അക്കൌണ്ട് തുറക്കൽ എന്നിവയ്ക്ക് ആധാർ കാർഡുകൾ സ്വമേധയാ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഓർഡിനൻസിന് രാഷ്ട്രപതി അംഗീകാരം നൽകി

ആധാർ സംബന്ധിച്ച സുപ്രീംകോടതി വിധിയുടെ സാഹചര്യ ത്തിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടി വന്നത് കാർഷിക വായ്പയിലെ ജപ്തി നടപടികൾ നിർത്തിവെ ക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദേശം നൽകിയതായി മന്ത്രി കടകംപള്ളി സൂരേന്ദ്രൻ തിരുവനന്തപൂരത്ത് പറഞ്ഞു

കർഷക ആത്മഹത്യ ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക മന്ത്രി സഭായോഗം ചേരും ജപ്തിനടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമ ന്ത്രിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ബാങ്കേഴ്സ് സമിതിയും ചേരുന്നുണ്ട് കർഷകരെ മാനസിക സമ്മർദ്ദത്തിലാക്കാതെ ബാങ്കുകൾ മനു ഷ്യത്ഥപരമായി പെരുമാറണമെന്ന് മന്ത്രി പി എസ് സുനിൽകു മാർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ജപ്തിനുടപടികൾ പാടി ല്ലെന്ന സംസ്ഥാന ഗവ നിർദേശം ബാങ്കുകൾ പാലിക്കുന്നി ല്ലെന്നും ജപ്തി നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ കർഷക ആത്മഹത്യകൾ വർധിച്ചിട്ടും ബാങ്കു കൾ നടപടിയുമായി മുന്നോട്ടു്പോകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുന്നണികൾ സ്ഥാനാർഥി നിർണയ്ത്തിൽ അന്തിമഘട്ട ചർച്ചകൾ തുടങ്ങി നാളെ മുതൽ വ്യാഴാഴ്ച വരെ സിപിഐഎഠ സംസ്ഥാന സെക്രട്ടറിയേറ്റും വെള്ളിയാഴ്ച എൽഡിഎഫ് യോഗവും തിരുവനന്തപുരത്ത് ചേർന്ന് സീറ്റ് വിഭജനം സ്ഥാനാർഥി നിർണയം എന്നിവ സംബന്ധിച്ച് തീരുമാനത്തിലെ ത്തും സിപിഐ സംസ്ഥാന കൌൺസിൽ തിരുവനന്തപുരത്ത് ആരം ഭിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കേന്ദ്ര എക്സിക്യൂട്ടീവും ചേർന്ന് സ്ഥാനാർഥി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപു രത്ത് തുടങ്ങി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ നൽകിയ സാധ്യതാ പട്ടികകൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് രണ്ടുസീറ്റ് വേണ മെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും രണ്ട് സീറ്റ് വേണമെന്നത് പാർട്ടിയുടെ പൊതു നിലപാടാണെന്നും കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ജോസ് കെ മാണി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സീറ്റ് സംബന്ധിച്ച ഉഭയ കക്ഷി ചർച്ചയിൽ തീരുമാനമായ ശേഷമേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ കോഴിക്കോട് സന്ദർശനത്തോട് അനുബന്ധിച്ച് പാർട്ടി പരിപ്പാടികൾ തീരുമാ നിക്കാൻ കോഴിക്കോട് കണ്ണൂർ കാസർകോട് മല്പ്പുറം പാല ക്കാട് വയനാട് ജില്ലകളിലെ നേതാക്കളുടെ സംയുക്ത യോഗം നാളെ കോഴിക്കോട്ട് ചേരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുട്ങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും

ജമ്മു കശ്മീരിലെ നിയന്ത്രണരേഖയിൽ വീണ്ടും പാക് വെടി വെയ്പ് അഖ്നൂർ സെക്ടറിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്കുനേരെ പുലർച്ചെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വ്വെടിയുതിർത്തത്

ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചതായി സുരക്ഷാ സേന അറിയിച്ചു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചു നടത്തുന്നത് വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ഇന്നും നാളെയും സന്ദർശനം നടത്തും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കമ്മീഷണർ ചർച്ച നടത്തും പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്ര സുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തീരുമാനമെടുത്തേക്കും ബിജെപിയെയും തൃണമൂൽ കോൺഗ്രസിനെയും നേരിടുന്നതിന് കോൺഗ്രസു മായി സഖ്യം വേണമെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ ആവ ശ്യം എന്നാൽ കോൺഗ്രസുമായി ബന്ധം വേണ്ടെന്ന നിലപാടും പാർട്ടിയിൽ ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്രകമ്മറ്റി തീരു മാനം നിർണായകമായേക്കുമെന്നാണ് റിപ്പോർട്ട്

ഒൻപത് ആഭ്യന്തര വിമാനങ്ങളും ഒരു രാജ്യാന്തര വിമാനവുമാണ് മഞ്ഞുവീഴ്ച കാരണം വൃഴിതിരിച്ചുവിട്ടത് ഇന്ന് മഹാശിവരാത്രി പിതൃമോക്ട് പ്രാപ്തിക്കായി ജന ലക്ഷങ്ങൾ ശിവക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലി തർപ്പണത്തിനെത്തി ആലുവ്യമണ്പ്പുറം അടക്കം പ്രമുഖ സ്നാനഘട്ടങ്ങളിലെല്ലാം വിശ്വാസികളുടെ തിരക്ക് അനുഭ വപ്പെട്ടു ആലുവ നഗരൂസഭയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് മണപ്പുറത്ത് എത്തുന്നവർക്ക് പ്രത്യേക ഇൻഷൂറൻസ് പ്രിരക്ഷയും നഗരസഭ ഏർപ്പെടുത്തി

ഈവർഷവും ഹരിത നടപടി ക്രമങ്ങൾ പാലിച്ചാണ് ആലു വയിൽ ശി്പരാത്രി ആഘോഷം മണപ്പുറത്തിന് പുറമെ അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ സൌകര്യം ഒരുക്കി യിരുന്നു

എസ് ആർ ടി

തിരുവല്ലം തിരുന്നാവായ തിരുനെല്ലി ശംഖുമുഖം ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പതിനായിരങ്ങളാണ് ബലിതർപ്പണത്തിനെത്തിയത്

തളിപ്പറമ്പ് രാജ രാജേ ശ്വര ക്ഷേത്രത്തിലും കാസർകോട് തൃക്കണ്ണാട് ത്രയംബകേ ശ്വര ക്ഷേത്രത്തിലും പുലർച്ചെ മുതൽ ദർശനത്തിന് വലിയ നിരയാണ് രൂപപ്പെട്ടത് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യ തയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

കോഴിക്കോടാണ് താപ നിലയിൽ ഏറ്റവും കൂടുതൽ വർധന മൂന്ന് ദിവസംകൊണ്ട് ശരാ ശരി താപനില നാല് ഡിഗ്രിയാണ് കോഴിക്കോട്ട് കൂടിയത് ബുധനാഴ്ചയോടെ കേരളത്തിൽ താപനില ആറ് ഡിഗ്രിവരെ കൂടാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുവരികയാ ണെന്നും ജനങ്ങൾ സുരക്ഷാ നിർദേശങ്ങൾ പാലിക്കാൻ തയ്യാ റാവണമെന്നും സംസ്ഥാന ദുരന്ത നിപ്പാരണ അതോറിറ്റി ആവ ശ്യപ്പെട്ടു കോഴിക്കോട് ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ് സിക്ക് ഉജ്ജല വിജയം ഇന്നല്ല് കോർപ്പറേഷൻ സ്റ്റേഡിയ ത്തിൽ നെരോക എഫ്

സി ഒരു ജയം നേടിയത്

എസ് എഫ് ഓവറോൾ ചാംപ്യൻമാരായി

എഫാണ് റണ്ണറപ്പ് വനിതകളുടെ മത്സരത്തിലും ബി എസ് എഫിനാണ് ചാംപ്യൻഷി പ്പ് മോചനദ്രവൃം ആവശ്യപ്പെട്ട് രണ്ട് യുവാക്കളെ തട്ടിക്കൊ ണ്ടുപോയ സംഭവത്തിൽ കണ്ണൂരിൽ രണ്ടു പേരെ പൊലീസ് അറസ്റ്റു ചെയ്തു കണ്ണൂർ തയ്യിലിലെ ജിതിൻ വിനോദ് ചാലാട്ടെ സാദ് അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത് കയ്യൂർ ഉദയ ഗിരി സ്വദേശികളെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളിൽ നിന്ന് ഇവർ മോചന ദ്രവൃം ആവശ്യപ്പെടുകയായിരുന്നു

ബ്ലാക്ക് മെയിൽ റേറ്റിങ് മാധ്യമ പ്രവർത്തനങ്ങൾ വർധി ക്കുന്നതാണ് ഇന്ത്യൻ മാധ്യമ രംഗത്തിന്റെ ശാപമെന്ന് ഫ്രണ്ട്ലൈൻ അസോസിയേറ്റ് എഡിറ്ററും മുതിർന്ന മാധ്യമപ്ര വർത്തകനുമായ വെങ്കിടേഷ് രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു

സമയ നഷ്ടമാണ് കാരണമെങ്കിലും ട്രെയിനുകളുടെ യാത്രാസമയം കുറച്ചിട്ടില്ല

നടൻ ക്ലാഭവൻ മണിയുടെ മൂന്നാം ചരമവാർഷികത്തോട നുബന്ധിച്ച് മറ്റ്ന്നാൾ വൈകിട്ട് കോഴിക്കോട് ടൌൺഹാളിൽ അനുസ്മരണ് പരിപാടി സംഘടിപ്പിക്കുമെന്ന് കലാഭവൻമണി സൌഹൃദ കൂട്ടായ്മ അറിയിച്ചു ജീവകാരുണ്യപ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യൽമെഷീൻ വിതരണവും സംഗീതസായാഹ്നവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊച്ചി ബ്യൂട്ടിപാർലർ വെടിവെയ്പ്പ് കേസിൽ കൊല്പത്തും കാസർകോട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി

കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമം തുടരുന്നു കാസർക്കോട് വെള്ളരിക്കുണ്ട് ബെവറേജസ് ഔട്ട്ലെറ്റിൽ വൻതീപിടുത്തം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്

ഫയർഫൊഴ്സ് എത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക ന്റിഗ്മനം കോഴിക്കോട് പുതിയസ്റ്റാൻഡ് പരിസര്ത്തെ അലൂമിനിയം കടയിൽ ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടാ യി സംഭവസ്ഥലത്ത് സുരക്ഷാ പരിശോധന നടത്തി വരിക്യാണെന്നും വിശദമായ റിപ്പോർട്ട് നാളെ തയ്യാറാക്കുമെന്നും ഫയർഫോഴ്സ് അറിയിച്ചു